ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒന്നാംഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു

എയുമായ കെ

ജെ

എ ഭീമാ മണ്ഡവി കൊല്ലപ്പെട്ടു നാല് സുരക്ഷാ ഭടൻമാർക്ക് വീരമൃത്യു

ഫുഡ്ബോൾ ഫൈനൽ റൌണ്ട് റോബിൻ മത്സരത്തിൽ ഇന്ത്യ മ്യാൻമാർ മത്സരം സമനിലയിൽ

ആസ്മാപ്രദേശ് അരുണാചൽപ്രദേശ് മേഘാലയ മിസോറം പ്രഭ്യാഗാലാന്റ് സിക്കിം ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ത്രെലങ്കാന ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും അസം ബീഹാർ ച്ഛത്തീസ്ഗഡ് ജമ്മുകാശ്മീർ മഹാരാഷ്ട്ര മണിപ്പൂർ ഒഡീഷ ത്രിപുര ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലുമാണ് ഒന്നാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്

ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ബാധിത ആദിവാസി മേഖലയായ ബസ്തർ നിയോജക മണ്ഡലത്തിലും ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ്

സ്വതന്ത്രവും നീതിയുക്തവും സമാധാനപരവുമായ വോട്ടെടുപ്പിന് വിപുലമായ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ ലത്തൂരിലും കർണ്ണാടകയിലെ ചിത്രദുർഗ്ഗയിലും ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ തെലങ്കാനയിലെ ഷംഷാബാദിലും തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ജനറൽസെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിലെ ബിജനോറിൽ റോഡ് ഷോ നടത്തി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി അസ്സമിലെ ഹൈലാകണ്ടിയിൽ പൊതുറാലി നടത്തി നാലാം ഘട്ട ലോക്സഭ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേക പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചു

ഗോവയിലെ പനാജി കർണ്ണാടകയിലെ കുണ്ഡ് ഗോൾ തമിഴ്നാട്ടിലെ സൂളൂർ അറവാകുറിച്ചി തിരുപ്പറംകുണ്ഡ്രം ഒറ്റപിരാഡം എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്

മുൻ ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറിന്റെ നിര്യാണത്തെ തുടർന്ന് പനാജിയിൽ സ്ഥാനം ഒഴിഞ്ഞ് കിടക്കുകയാണ്

എം കെ എം

ബോസിന്റെയും നിര്യാണത്തെ തുടർന്നാണ് തമിഴ്നാട്ടിലെ സൂളൂരിലും തിരുപ്പരം കുണ്ഡ്രത്തിലും ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്

പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പ്പി ് ഗ്വൺമെന്റ് സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ ത്രൂട്ടർന്നാണ് സി ബി ഡി

സി മോദിയെയു്ം റവന്യൂ സെക്രട്ടറി എ ബി പാണ്ഡെയും കമ്മീഷൻ ചർച്ചയ്ക്ക് വിളിച്ചത് റവന്യൂ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളും തികച്ചും നിഷ്പക്ഷമായും വിവേചന രഹിതമായും പ്രവർത്തിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു

എയുമായ കെ

മാണി അന്തരിച്ചു

ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഈ മാസം അഞ്ചിനാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടുവെങ്കിലും ഇന്ന് ഉച്ചകഴിഞ്ഞ് സ്ഥിതി വീണ്ടും വഷളാവുകയായിരുന്നു ഏറ്റവും കൂടുതൽ കാലം മന്ത്രിസ്ഥാനം വഹിച്ചയാൾ ഏറ്റവും അധികം മന്ത്രിസഭകളിൽ അംഗം തുടങ്ങിയ റിക്കാർഡുകൾ സൃഷ്ടിച്ചാണ് അദ്ദേഹം വിടവാങ്ങുന്നത്

കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന് ബദലായി മാണി അധ്വാനവർഗ്ഗ സിദ്ധാന്തം അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി

കോൺഗ്രസ് നേതാവ് പി

ചാക്കോയുടെ ബന്ധുവായ കുട്ടിയമ്മയാണ് ഭാര്യ ജോസ് കെ മാണി എം പി ഉൾപ്പടെ ആറ് മക്കളുണ്ട്

എം മാണിയുടെ നിര്യാണത്തിൽ ഗവർണർ പി

കാരുണ്യലോട്ടറി കർഷകപെൻഷൻ തുടങ്ങിയവ നടപ്പാക്കാനായത് അദ്ദേഹത്തിന്റെ നേട്ടമാണെന്നും ഗവർണർ പറഞ്ഞു

എം മാണിയുടെ നിര്യാണം യു ഡി

മുൻമൂഖ്യ്മന്ത്രിമാരായ എ

കെ എം മാണിയുടെ സംസ്കാരം മറ്റെന്നാൾ സമ്പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ പാലായിൽ നടക്കും

തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു എം എൽ എ

ആറ് ജവാന്മാർക്കുള്ള മരണാനന്തര ധീരതാ മെഡലുകളും പുരസ്കാരങ്ങളും ശ്രീ രാംനാഥ് കോവിന്ദ് സമ്മാനിച്ചു സമാധാന അന്തരീക്ഷത്തിൽ രാജ്യം വികസനത്തിന്റെ പാതയിൽ ഏറെ മുന്നോട്ട് പോവുകയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു

ജമ്മുകാശ്മീരിൽ ഭീകരവാദവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സി

എഫ് വഹിക്കുന്ന പങ്ക് പ്രശംസനീയമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു

എഫിലെ രക്തസാക്ഷികളുടെ അടുത്ത ബന്ധുക്കളെ സഹായിക്കാനുതകുന്ന വീർ പരിവാർ എന്ന ആപ്പും രാഷ്ട്രപതി പുറത്തിറക്കി

ഡി ന്തോവ് ലാലുപ്രസാദ് യാദവിന്റെ ജാമ്യാപ്പേക്ഷയെ സി ബി ഐ സുപ്രീംകോടതിയിൽ ഇന്ന് എതിർത്തു

ബി ഐ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അദ്ധ്യക്ഷനായ ബെഞ്ചിനെ അറിയിച്ചു ഇത്തരം അഴിമതികേസുകളിൽ ജാമ്യം നൽകുന്നത് തെറ്റായ കീഴ്വഴക്കത്തിനിടയാക്കുമെന്നും സി ബി

സെൻസർ ബോർഡ് ഇതുവരെ ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാൽ ഹർജി അനവസരത്തിലുളളതാണെന്ന് സുപ്രീംകോടതി പറഞ്ഞു

ഇരു ടീമുകളും മൂന്നു ഗോൾ വീതം നേടി